എസ് ആർ

എസ് ആർ

ആർ ഒ നിർവഹി ക്കുമെന്നും അദ്ദേഹം അറിയിച്ചു നഗരാസൂത്രണം ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനം തീരദേശ ഭൂവിനിയോഗം ദുരന്ത നിവാ രണം എന്നീ മേഖലകളിൽ വിവരങ്ങൾ ശേഖരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഉപഗ്ര ഹത്തിന്റെ രൂപകൽപന

ആർ ഒ ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു

എസ്

എസ് കേസിൽ ആറ് പ്രതികളെയും കോടതി ശിക്ഷിച്ചു

ഐ എ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത് കോയമ്പത്തൂർ സ്വദേശിയും മൂന്നാം പ്രതിയുമായ റാഷിദ് അലിയെ ഏഴുവർഷം തടവിന് ശിക്ഷിച്ചു നാലാംപ്രതി കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി എൻ കെ റാഷിദിന് മൂന്നുവർഷം തടവ് ലഭിക്കും അഞ്ചാം പ്രതി തിരൂർ സ്വദേശി സഫ്വാന് അഞ്ചുവർഷമാണ് തടവ് ശിക്ഷ എട്ടാം പ്രതി മൊയിനുദ്ദീനെ മൂന്നുവർഷത്തെ തടവിനും ശിക്ഷിച്ചു ഒമ്പത് പ്രതികളാണ് കേസിലുണ്ടായിരുന്നത് ഏഴ് പ്രതികൾ വിചാരണ നേരിട്ടു ഒരാൾ കുറ്റക്കാ രനല്ലെന്ന് കണ്ട് വിട്ടയച്ചിരുന്നു

എസുമായി ബന്ധപ്പെട്ട് കനകമലയിൽ ആക്രമണത്തിന് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു കേസ് എന്നാൽ കേസിലെ പ്രതി കൾക്ക് ഐ എസിൽ അംഗത്വമുണ്ടായിരുന്നുവെന്ന് തെളിയിക്കാനായിട്ടില്ലെന്ന് കോടതി വൃക്തമാക്കി

എസ് ജാതിപറഞ്ഞ് വോട്ട് പിടിച്ചെന്ന പരാ തിയിൽ അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് കാണിച്ച് സംസ്ഥാന പൊലീസ് മേധാവി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകി പരാതിക്കാർപോലും മൊഴി നൽകാൻ ഹാജരായില്ലെന്ന് കാണിച്ചാണ് പൊലീസ് അന്വേഷണം അവസാനിപ്പിച്ചത്

എ കേസിലെ പ്രതികളായ അലൻ താഹ എന്നി വരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി പ്രതികൾക്ക് മാവോയിസ്റ്റ് ബന്ധ മുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു

രുട്ടിട്ട്ട്ട്ട്ട്ട മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ഉദ്ധവ് താക്കറെ നാളെ വൈകീട്ട് സത്യ പ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ദാദറിലെ ശിവാജി പാർക്കിൽ നട ക്കുന്ന ചടങ്ങിൽ ഗവർണർ ഭഗത്സിംഗ് കോഷിയാരി മുഖ്യമന്ത്രിക്കും മന്ത്രി മാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും അതിനിടെ ശിവസേനയുടെയും എൻ

പിയുടെയും കോൺഗ്രസിന്റെയും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബ ന്ധിച്ച് രണ്ടുദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് നിയമ സഭാകക്ഷി നേതാവ് ബാലാ സാഹബ് തോറാട്ട് മുംബ്രൈയിൽ പറഞ്ഞു മന്ത്രിമാരുടെ എണ്ണം സംബന്ധിച്ചും ഇതോടൊപ്പം തീരുമാനമാകുമെന്നും അദ്ദേഹം അറിയിച്ചു അതിനിടെ നിയുക്ത മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ രാജ്ഭ വനിൽ ഗവർണർ ഭഗത്സിംഗ് കോഷിയാരിയുമായി കൂടിക്കാഴ്ച നടത്തി

ദേവേന്ദ്ര ഫഡ്നാവിസ് അജിത് പവാർ ആദിത്യ താക്കറെ തുടങ്ങിയവർ പ്രോടെം സ്പീക്കർ മുമ്പാകെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തവരിൽപ്പെടുന്നു

തെരഞ്ഞെ ടുപ്പ് ഫലം വന്ന് ഒരുമാസത്തിന് ശേഷമാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്

സി പിയിൽ തന്നെയെന്ന് മഹാരാഷ്ട്രയിൽ ഉപമു ഖ്യമന്ത്രി പദം രാജിവെച്ച അജിത് പവാർ വ്യക്തമാക്കി ഇക്കാര്യത്തിൽ ആശ യക്കുഴപ്പം ഉണ്ടാകേണ്ട കാര്യമില്ലെന്ന് അദ്ദേഹം മുംബൈയിൽ പറഞ്ഞു

എക്സ് മീഡിയ കേസിൽ തീഹാർ ജയിലിൽ കഴിയുന്ന മുൻ ധനമന്ത്രി പി ചിദംബരത്തെ കോൺഗ്രസ് നേതാക്കളായ രാഹുൽഗാന്ധിയും പ്രിയങ്കഗാന്ധിയും സന്ദർശിച്ചു ചിദംബരത്തിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോ ടതി പരിഗണിക്കാനിരിക്കെയാണ് സന്ദർശനം

ബി

ഈ കേസിൽ ചിദംബരത്തിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും

നാളെ രാവിലെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ കലാദീപ ത്തിന് തിരി തെളിയിക്കും വർഷങ്ങളുടെ ഇടവേളക്ക് ശേഷം കാസർകോട് ജില്ലയിലെത്തുന്ന കലോത്സവത്തെ എതിരേൽക്കാൻ നാടും നഗരവും ഒരു ങ്ങിക്കഴിഞ്ഞു കലോത്സവ രജിസ്ട്രേഷൻ രാവിലെ ആരംഭിച്ചു വിവിധ ജില്ലകളിൽ നിന്ന് എത്തുന്ന പ്രതിഭകൾക്ക് റെയിൽവെ സ്റ്റേഷനിൽ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകി മത്സരിക്കുന്നവർക്കും കാഴ്ചക്കാർക്കും ഇഷ്ടപ്പെട്ട ഇനവും വേദിയും കണ്ടെത്താൻ വിസിറ്റ് കാസർകോട്

ഇതിനുപുറമെ ഭക്ഷണപന്തൽ വാഹന പാർക്കിംഗ് താമസസൌകര്യം ഗതാഗത സൌകര്യം എന്നിവ സംബന്ധിച്ച വിവരങ്ങളും സൈറ്റിൽ ലഭ്യമാണ്

പാചകശാലയുടെ പാലുകാച്ചൽ രാവിലെ നടന്നു

പരിക്കേറ്റ ഓപ്പണർ ശിഖർ ധവാന് പകര മാണ് സഞ്ജുവിനെ ടീമിലേക്ക് തിരികെ വിളിച്ചത് മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയാണ് ഇന്ത്യ വിൻഡീസിനെതിരെ കളിക്കുന്നത് ഡിസംബർ ന് ഹൈദ രാബാദിലാണ് ആദ്യ മത്സരം

എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ സിറ്റിയെ നേരിടും ഇന്നലെ മഡ്ഗാവിൽ ജംഷഡ്പൂർ എഫ് സി ഗോവ എഫ് സിയെ തോല്പിച്ചു

ജലീൽ ഉദ്ഘാടനം ചെയ്യും എൻ സിസി കേഡറ്റുകളുടെ കുതിരാഭ്യാസം മാർച്ച് പാസ്റ്റ് ബാന്റ് തുടങ്ങി യ പരിപാടികൾ സമാപന ചടങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ സി സി അഡീഷണൽ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ബി

ഗിൽഗാഞ്ചി പരി പാടികൾക്ക് നേതൃത്വം നൽകും

ഐ ടിയിലെ ഹോ സ്റ്റൽ മു റി യിൽ മ രി ച്ച നിലയിൽ കാണപ്പെട്ട കൊല്ലം സ്വദേശി ഫാത്തിമ ലത്തീഫിൻെറ ബന്ധു ക്കൾ അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ചെന്നൈയിലേക്ക് പോ യി ഫാത്തിമയുടെ മൊബൈൽഫോൺ ബന്ധുക്കളുടെ സാന്നിധൃത്തിലേ പരിശോധിക്കാവൂ എന്ന് നേരത്തെ അപേക്ഷ നൽകിയിരുന്നു ഫോൺ പരി ശോധനയ്ക്കായി എത്താൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഫാത്തിമയുടെ പിതാ വുൾപ്പെടെ ബന്ധുക്കൾ ചെന്നൈയിലേക്ക് പോയത് ഫാത്തിമ ഉപയോഗി ച്ചിരുന്ന ലാപ്ടോപ്പ് ടാബ് എന്നിവ പരിശോധനയ്ക്കായി പോലീസ് കമ്മീഷ ണർക്ക് കൈമാറുമെന്ന് ബന്ധുക്കൾ കൊല്ലത്ത് മാധ്യമങ്ങളെ അറിയിച്ചു

പിയുടെ സഹാ യത്തോടെയാണ് പ്രതിയെ പിടികൂടാനായതെന്ന് പൊലീസ് അറിയിച്ചു രുട്ട്ട്ട്ടറും ഗൾഫ് രാജ്യങ്ങളിൽ മരണമടയുന്ന പ്രവാസി മലയാളികളുടെ ഭൌതിക ശരീരം മറ്റു സഹായങ്ങൾ ലഭിക്കാത്ത് സാഹചര്യത്തിൽ സൌജന്യമായി നാട്ടിലെത്തിക്കാൻ നോർക്ക റൂട്ട്സും എയർ ഇന്ത്യയും ഒപ്പുവെച്ചു വിമാന ത്തിലെത്തിക്കുന്ന ഭൌതിക ശരീരം നോർക്കയുടെ എമർജൻസി ആംബു ലൻസിൽ വീടുകളിലും എത്തിച്ചുകൊടുക്കുന്നതാണ് പദ്ധതി

കോഴിക്കോട് നിലയത്തിൽനിന്ന് മത്സ രിച്ച ദേവിക പ്രമോദ് ലളിതസംഗീതത്തിൽ ഒന്നാം സ്ഥാനം നേടി പാശ്ചാതൃസംഗീതത്തിൽ മാളവിക എസ്

പിയുടെ സങ്കൽപ് യാത്ര ഇന്ന് കണ്ണൂരിൽ നടക്കും ഉച്ച കഴിഞ്ഞ് പു തിയ തെരുവിൽ നിന്ന് കണ്ണൂരിലേക്കാണ് യാത്ര

ജെ പി നേതാവ് കുമ്മ നം രാജശേഖരൻ നയിക്കുന്ന യാത്ര സ്വാതന്ത്ര്യസമര സേനാനിയും പ്രമുഖ ഗാന്ധിയനുമായ വി

അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്യും രുട്ടിട്ട്ട്ട്ട്ട്ട ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ ഗുണഫലം എല്ലാ ഉപഭോക്താക്കളിലും എത്തിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് സംസ്ഥാന ഭക്ഷ്യകമ്മിഷൻ അംഗം പി വസന്തം പറഞ്ഞു പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ഏറ്റവും വലിയ ജീവൽപ്രശ് നത്തിന് പരിഹാരമായാണ് നിയമം നിലവിൽ വന്നത് ഗുണമേൻമയുള്ള മതിയായ ഭക്ഷണം ലഭിച്ചില്ലെങ്കിൽ ഒരു വൃക്തിക്ക് നിയമം പ്രകാരം പരാതി നല്കാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു ഉത്തരമേഖലാ ഡപ്യൂട്ടി റേഷനിംഗ് കൺട്രോളർ വി വി സുനില ആമുഖ പ്രഭാഷണം നടത്തി രുവ്ട്ട്ട്ട്ട്ട്ട ശബരിമലയിൽ നിന്ന് വാങ്ങിയ അരവണയിൽ പല്ലിയെ കണ്ടെത്തിയെന്ന പ്രചാരണത്തിനെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡി ജി

വ്യാജ വാർത്ത തയ്യാറാക്കിയവരെ കണ്ടെത്തി നടപടി സ്വീക രിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടതായി ദേവസ്വംബോർഡ് പ്രസിഡന്റ് എൻ വാസു തിരുവനന്തപുരത്ത് പറഞ്ഞു വാർത്ത വാസ്തവവിരുദ്ധമാ ണെന്നും അദ്ദേഹം അറിയിച്ചു സുഗമമായ തീർത്ഥാടന കാലം അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമമാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് പിന്നിലെന്ന് തിരുവിതാംകൂർ ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു രുവെട്ടിര ശബരിമല മരക്കൂട്ടത്ത് മരം ഒടിഞ്ഞുവീണുണ്ടായ അപകടത്തിൽ പരി ക്കേറ്റ് ചികിത്സയിലായിരുന്ന അയ്യപ്പ ഭക്തൻ മരിച്ചു തെലങ്കാന സ്വദേശി രവി ആണ് മരിച്ചത്